രണ്ടായിരത്തിലേറെ ലാബുകളിൽ കൂട്ടപരിശോധന

മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ആർ

ആർ പരിശോധന നിർബന്ധമാക്കി

രോഗബാധിതരുമായി സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്തുന്നതിനും പരിശോധനാഫലം നേരത്തെ ലഭ്യമാക്കുന്നതിനും മുൻഗണന നൽകണം പരിശോധന ആശുപത്രിയിലെ കിടക്കകളുടെ എണ്ണം വാക്സിൻ ജീവനക്കാരുടെ ലഭൃത എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞു

എല്ലാം സംസ്ഥാനങ്ങളിലും വാക്സിനേഷനൊപ്പം കൂട്ടപരിശോധനയും വ്യാപകമാക്കി

കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ ഐസൊലേഷൻ കോച്ചുകൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു

രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സ്ഥല പരിമിതി അനുഭവപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് റെയിൽവെ കോച്ചുകളെ ഇതിനായി ആശ്രയിക്കാവുന്നതാണെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്

ഈ ട്രെയിനിന്റെ ഗതാഗതത്തിനായി ഹരിത ഇടനാഴി ഉണ്ടാക്കുമെന്ന് റെയിൽവെ മന്ത്രാലയം അറിയിച്ചു ദ്രവീകൃത മെഡിക്കൽ ഓക്സിജനും ഓക്സിജൻ സിലിൻഡറുകളും കൊണ്ടുപോകുന്നതിനായി റെയിൽവെ പൂർണ്ണസജ്ജമാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര സർക്കാരുകൾ ഓക്സിജൻ സിലിൻഡറുകൾ കൊണ്ടുപോകുന്നതിനായി റെയിൽവെയെ സമീപിച്ചിരുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി

ഒന്നര ലക്ഷം കുപ്പി മരുന്നാണ് നിലവിൽ ഉല്പാദിപ്പിക്കുന്നത്

തൃശൂർ കോട്ടയം മലപ്പുറം കണ്ണൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ആയിരത്തിന് മുകളിലാണ് പ്രതിദിന കോവിഡ് ബാധ

പൊതു പരിപാടികളായ വിവാഹം ഗൃഹപ്രവേശം എന്നിവയ്ക്ക് മുൻകൂട്ടി അനുമതി വാങ്ങണം ഇവയും പോർട്ടലിൽ മുൻകൂട്ടി രജിസ്ട്രർ ചെയ്യേണ്ടതാണ്

അതേസമയം തൃശ്ശൂർപൂരം നടത്തിപ്പ് സംബന്ധിച്ച് നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിനു ശേഷം അന്തിമ തീരുമാനം എടുക്കും

ആരോഗ്യ സർവ്വകലാശാല നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളും മാറ്റി

പുതിക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കൺട്രോളർ ഓഫ് എക്സ്ാമിനേഷൻസ് വാർത്താ കുറിപ്പിൽ അറിയിച്ചു

മഹാത്മാർഗാന്ധി സർവ്വകലാശാല കാലിക്കറ്റ് സർവ്വകലാശാല മ്ലിയാ്ള സർവ്വകലാശാല ആരോഗ്യ സർവകലാശാല സംസ്കൃത സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാല എന്നിവയും നാളെ മുതൽ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചതായി അറിയിച്ചു

രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിംഗ്സിനെതിരെ ബൌളിംഗ് തിരഞ്ഞെടുത്തു

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുർബസ്ഥലിൽ നടന്ന പ്രചാരണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ കുറയ്ക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ്സ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു പ്രചാരണം വെട്ടിക്കുറച്ചതിൽ മമതാബാനർജി നിരാശ പ്രകടിപ്പിച്ചു

വലിയ റാലികളും പൊതു സമ്മേളനങ്ങളും സംഘടിപ്പിച്ചാലുണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചിന്തിക്കണമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു